നാലാംഘട്ട പ്രചാരണം ഉച്ചസ്ഥായിയിൽ വിവിധ ്രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തെരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോകളും നടത്തുന്നു

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരായ ഗൂഢാലോചന അന്വേഷിക്കാൻ മുൻജഡ്ജി ജസ്റ്റിസ് എ

ഏഷ്യൻ ബോക്സിങ് ചാമ്പൃൻഷിപ്പ് പുരുഷവിഭാഗം ഫൈനലിൽ മൂന്ന് ഇന്ത്യൻ താരങ്ങൾ ഇടം നേടി

വ്യത്യസ്ത സംസ്ഥാനങ്ങളിലായി വിവിധ രാ്രിഷ്ട്രീയ് കക്ഷി നേതാക്കൾ ഊർജ്ജിതമായ പ്രചാരണം നടത്തുന്നു കൂടുതൽ വിവരങ്ങളുമായി സ്പ്രപ്രഭ

സിറ്റിംഗ് എം പിയായ അദ്ദേഹം നാളെ ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും കനത്ത സുരക്ഷയാണ് പ്രധാനമന്ത്രിയുടെ റോഡ്ഷോയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ളത്

ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ പ്രശസ്തമായ ലങ്ക ഗേറ്റിൽ നിന്നും തുടങ്ങിയ റോഡ്ഷോ ദശാശ്വമേധ്ഘട്ടിൽ അവസാനിക്കും മുതിർന്ന ബിജെപി നേതാക്കളായ അമിത്ഷാ പിയൂഷ്ഗോയൽ ജെ

നദ്ദ എന്നിവരുമായി പ്രധാനമന്ത്രി നേരത്തെ ചർച്ചു നടത്തി ഗംഗാ ആരതിയിലും ശ്രീ മോദി പങ്കെടുക്കും വിവിധ മേഖലകളിലെ വിദഗ്ദ്ധരുമായും ശ്രീ

ബിജെപി അദ്ധ്യക്ഷൻ അമിത്ഷാ ഉത്തർപ്രദേശിൽ പ്രചാരണം നടത്തുകയാണ്

ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട് എൻഡിഎ ഗവണ്മെന്റ് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ലെന്ന് ഗാസിപൂരിൽ ശ്രീ അമിത്ഷാ പറഞ്ഞു ഭീകരതയ്ക്ക് കനത്ത തിരിച്ചുടി നൽകും

രാഹുൽ ഗാന്ധി പറഞ്ഞു

ജമ്മു കശ്മീരിലെ കുൽഗാം ജില്ലയിലെ അനന്ത്നാഗ് മണ്ഡലത്തിൽ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ബിജെപി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ പ്രതിപക്ഷത്തിന് ഭീകരതയുടെ കാര്യത്തിൽ കൃത്യമായ നയമില്ലെന്നും ശ്രീ

ബുന്ദേൽഖണ്ഡ് മേഖ്ലയിലെ നിർദ്ദിഷ്ട അതിവേഗപാത അനേകം തൊഴിലവസ്ട്രിങ്ങൾ സൃഷ്ടിക്കും

അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സി

ബി ഡയറക്ടർമാരോടും ഡൽഹി പോലീസ് കമ്മീഷണറോടും കോടതി ആവശ്യപ്പെട്ടു എന്നാൽ ഏകാംഗ കമ്മീഷൻ ചീഫ് ജസ്റ്റിസിനെതിരെയുളള ലൈംഗിക പീഢന ആരോപണം അന്വേഷിക്കില്ലെന്ന് പരമോന്നത കോടതി വൃക്തമാക്കി അന്വേഷണം പൂർത്തീകരിച്ചാൽ ജസ്റ്റിസ് പട്നായ്ക് റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്

സുരക്ഷാ കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഭൂമ്മായ് ്തുക ഭീകരത ഉന്മൂലനം ചെയ്താൽ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായി വിനിയോഗിക്കാം

നവഇന്ത്യയാണ് ഇപ്പോഴുള്ളതെന്നും ഭീകരതെ സഹായിക്കുന്നവരെ അവരുടെ വീടുകളിൽ വരെ എത്തി വേട്ടയാടുമെന്നും ശ്രീ

രാജ്യസുരക്ഷായ്ക്കാണ് ബി

പി മുൻഗണന കൊടുക്കുന്നതെന്ന് ഉത്തർപ്രദേശിലെ ഔറയ്യയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവേ അദ്ദേഹം പഠഞ്ഞൂ മോദി ഗവൺമെന്റിന്റെ കാലത്ത് പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകാൻ സാധിച്ചതായും ബി ജെ പി പ്രസിഡന്റ് വ്യക്തമാക്കി

രൂക്ഷമായ തിരുവനന്തപുരം തീരം സന്ദർശിച്ചു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്തനിവാരണ അതോറിറ്റി അടിയന്തരമായി ചെയ്യേണ്ട നടിപ്പടികൾ സ്വീകരിച്ചിട്ടുണ്ട്

ദീപക്സിംഗും ആശിശ്കുമാറും പുരുഷന്മാരുടെ ഫൈനലിൽ ഇടം പിടിച്ചിട്ടുണ്ട് പൂജറാണി വനിതാ വിഭാഗത്തിൽ അവസാന നാലിൽ ഇടം നേടി

മോദി പ്രധാനമന്ത്രി ആദർശ് ഗ്രാമ യോജനയിൻ കീഴിൽ നാല് ഗ്രാമങ്ങൾ ദത്തെടുത്തുവെങ്കിലും പ്രധാനമന്ത്രിയുടെ നിധിയിൽ നിന്ന് ഈ ഗ്രാമങ്ങളുടെ വികസനത്തിനായി ഒരു പൈസാ പോലും ചെലവഴിച്ചിട്ടില്ലെന്ന് പാർട്ടി വക്താവ് രാഗിണി നായക് മാധ്യമങ്ങളോട് പറഞ്ഞു

ചരക്ക് സേവന നികുതി നോട്ട് അസാധുവാക്കൽ എന്നിവ പാവപ്പെട്ട തൊഴിലാളികളെയും ചെറുകിട വ്യാപാരികളെയും കൊളളയടിക്കാൻ കൊണ്ടുവന്നതാണെന്ന് ശ്രീ രാഹുൽ കുറ്റപ്പെടുത്തി

ഇതുവഴി സമ്പദ് വൃവസ്ഥ ശക്തിപ്പെടുമെന്നും കോൺഗ്രസ് അദ്ധ്യക്ഷൻ പറഞ്ഞു

ദരിദ്രർ ആലംബഹീനർ യുവാക്കൾ കർഷകർ എന്നിവർക്ക് വേണ്ടി ബിജെപി അധരസേവനം മാത്രമാണ് നടത്തുന്നതെന്ന് എസ് പി നേതാവ് അഖിലേഷ് യാദവുമായി ചേർന്ന് നടത്തിയ സംയുക്ത റാലിയെ അഭിസംബോധന ചെയ്യവെ അവർ പറഞ്ഞു കോൺഗ്രസിനെയും ശ്രീമതി

പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ഡോ

അംബേദ്കർക്ക് ഭാരത രത്ന നല്കാത്തതിനാണ് അവർ വിമർശിച്ചത്

വിവിധ മേഖലകളിൽ കൈവരിക്കേണ്ട പൂരോഗതിയും അടിസ്ഥാനതലത്തിൽ നേടേണ്ട കാര്യങ്ങളും ആധുനികവത്ക്കരണത്തിന്റെ ഗതിയും സമ്മേളനം ചർച്ച ചെയ്തു നാവിക രംഗത്ത് ഉണ്ടായേക്കാവുന്ന ഏത് വെല്ലുവിളിയേയും പ്രതിരോധിക്കാൻ ശക്തമായ ഒരു സേനയ്ക്ക് രൂപം നല്കുന്നതിന് സാധ്യമായ വിഭവങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ മൂന്ന് ദിവസത്തെ സമ്മേളനകാലത്ത് ശ്രീമതി

ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേളിക്ക്ൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപുമായുള്ള ചർച്ചകൾ തിട്സുപ്പെട്ടതിനെ തുടർന്ന് റഷ്യൻ പിന്തുണ നേടാനുള്ള ശ്രമര്ത്തിന്റെ ഭാഗമായാണ് അദ്ദേഹം പുടിനെ കാണാനെത്തിയത്

തിവാരിയാണ് ഗോരഖ്പൂരിൽ മധുസൂദൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി

ഡൽഹിയിലെ ഏഴ് സീറ്റുകൾ കേന്ദ്രഗവണ്മെന്റ് രൂപീകരണത്തിൽ നിർണായകമാകുമെന്നും അദ്ദേഹം പറഞ്ഞു